എൽ

കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് കേരളത്തിലെത്തും

ദിസ് ഈസ് നോട്ട് എ ബറിയൽ ഇറ്റ് ഈസ് എ റിസ്റക്ഷൻ എന്ന ചിത്രത്തിന് സുവർണ ചകോരം ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ചുരുളി പ്രേക്ഷകപ്രീതി നേടി

പിഎൽഐ പദ്ധതി സംബന്ധിച്ച് നിതി ആയോഗും വാണിജൃ വൃവസായ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച വെബിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

തദ്ദേശീയ ഉത്പന്നങ്ങളുടെ ഗുണമേൻമ വർധിപ്പിക്കുന്നത് ആഗോളവിപണിയിൽ രാജ്യത്തിന് സ്വീകാര്യത നൽകുമെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി പ്ടിഎൽഐ വൃവസായ രംഗത്തെ കയറ്റുമതി ക്ഷമത വർധിപ്പിക്കുമെന്നും തൊഴിലവസരങ്ങൾ കൂട്ടുന്നതിനൊപ്പം വരുമാനവും ഉയർത്തു്മെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു

നവീകരണം സാങ്കേതികവിദ്യ നിക്ഷേപം പുതു സംരംഭങ്ങൾ ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ സ്വീഡൻ ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് കൂടിക്കാഴ്ചയിൽ ശ്രീ

പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതിനാണ് ഭാരതീയ സംസ്കാരം എല്ലായ്പ്പോഴും പ്രാധാന്യം നൽകിയിട്ടുള്ളത് പാരിസ് ഉടമ്പടിയിൽ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ രാജ്യം പ്രതിജ്ഞാബദ്ധതയോടെ മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി

സെറാവീക്ക് സ്ഥാപകൻ ഡോ ഡാനിയേൽ എർഗിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗ്ലോബൽ എനർജി ആന്റ് എൻവയോൺമെന്റ് ലീഡർഷിപ്പ് പുരസ്ക്കാരം സമ്മാനിച്ചു

ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയ യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് അദ്ദേഹം തിരുവനന്തപുരത്തെത്തുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായതിന് ശേഷം ആദ്യമായാണ് ശ്രീ

നാളെ കേരളത്തിലും തമിഴ്നാട്ടിലുമായി നടക്കുന്ന വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും

അമിത് ഷാ നാളെ രാവിലെ റോഡുമാർഗം കന്യാകുമാരിയിലേക്ക് പോകും

അമിത് ഷാ ബിജെപി കോർ കമ്മിറ്റി യോഗത്തിലും ശ്രീരാമകൃഷ്ണ മഠത്തിൽ നടക്കുന്ന സന്യാസി സംഗമത്തിലും പങ്കെടുക്കും

കെവാഡിയയിൽ നടന്ന സംയോജിത കമാൻഡേഴ്സ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഇരുരാജ്യങ്ങളും തമ്മിൽ ഹോട്ട്ലൈൻ ബന്ധത്തിന് സംവിധാനം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി

അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം നിലനിർത്തുന്നതിനും ഉഭയകക്ഷി ബന്ധത്തിന് ഉൌന്നൽ നൽകുന്നതിനുമാണ് പ്രാധാന്യമെന്ന് അംബാസിഡർ പറഞ്ഞു

തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ദേശീയസമിതി തിങ്കളാഴ്ച ആദ്യയോഗം ചേരും

ശ്രീരാമകൃഷ്ണന് കസ്റ്റംസ് നോട്ടീസ് നൽകി

ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന സമിതിയിൽ സിപിഎം സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക പട്ടിക തയാറായി രണ്ട് ടേം നിബന്ധന കർശനമായി പാലിച്ചുള്ള സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ അഞ്ച് മന്ത്രിമാർ സ്പീക്കർ എന്നിവരെ ഒഴിവാക്കി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിനുള്ള കോൺഗ്രസ് സ്ക്രീനിങ് കമ്മിറ്റി ഇന്ന് രാവിലെ കെപിസിസി ആസ്ഥാനത്ത് ചേരും തുടർച്ചയായി രണ്ട് തവണ തോറ്റവർക്ക് ഇക്കുറി അവസരം നൽകേണ്ടതില്ലെന്നാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതിയുടെ തീരുമാനം ഇന്ന് ചേരുന്ന ബിജെപി കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക പട്ടിക പുറത്തിറങ്ങും

ബ്ചിജെപി അസം ഗണപരിഷത്ത് യുണൈറ്റഡ് പീപ്പിൾസ് പാർട്ടി ലിബറൽ യു

മലയാളി സംവിധായകൻ ലിജോ ജോസ് പെല്ലിശേരിയുടെ ചുരുളി പ്രേക്ഷക പ്രീതി നേടിയ ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടു

മികച്ച നവാഗത സംവിധായകനുള്ള രജതചകോരം ലോൺലി റോക്കിന്റെ സംവിധായകൻ അലഹാൻഡ്രോ റ്റെലമാക്കോ ടറാഫിനാണ് മികച്ച സംവിധായകനുള്ള രജതചകോരം ദി നെയിംസ് ഓഫ് ദി ഫ്ളവേഴ് സിന്റെ സംവിധായകൻ ബാഹ്മാൻ തവോസി നേടി

മേളയിലെ മികച്ച മലയാള ചിത്രത്തിനുള്ള സ്റ്റ്പ്പാക് പുരസ്കാരം വിപിൻ ആറ്റ്ലി സംവിധാനം ചെയ്ത മൃഗ്ലിക്കൽ ചെയറിനാണ് കോവിഡ് പശ്ചാത്തലത്തിൽ നാലുമ്ഖ്ഖലകളിലായാണ് ഇത്തവണ കേരള രാജ്യാന്തര ചലച്ചിത്ര മേള നടന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

വി സിന്ധു കിഡംബി ശ്രീകാന്ത് എന്നിവർ സിസ് ഓപ്പണിന്റെ സെമി ഫൈനലിലേക്ക് കടന്നു